ഗണനയ്ക്കുവന്നേക്കും സംസ്ഥാനത്ത് ജനമൈത്രി പൊലീസ് സംവിധാനം വ്യാപിപ്പിക്കുമെന്ന് മുഖ്യ

നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരെ വൈ എസ് ആർ കോൺഗ്രസും തെലു ഗുദേശം പാർട്ടിയും നോട്ടീസ് നൽകിയ അവിശ്വാസപ്രമേയം ഇന്ന് ലോക്സഭ യുടെ പരിഗണനയ്ക്ക് വന്നേക്കും ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി വേണ മെന്ന ആവശ്യം തള്ളിയതിനെ തുടർന്നാണ് രണ്ടു പാർട്ടികളും വെള്ളിയാഴ്ച അവി ശ്വാസപ്രമേയത്തിന് നോട്ടീസ് നൽകിയത് പ്രതിപക്ഷബഹളം മൂലം സഭാനടപടി കൾ ക്രമപ്രകാരമല്ലെന്ന് കാണിച്ച് പ്രമേയം സ്പീക്കർ പരിഗണിച്ചിരുന്നില്ല ഇതേ തുടർന്ന് വൈ എസ് ആർ കോൺ ഗ്രസും ടി ഡി പിയും വീണ്ടും അവിശ്വാസപ്രമേ യത്തിന് നോട്ടീസ് നൽകുകയായിരുന്നു

അതിനിടെ ബജറ്റ് സമ്മേളനം തീരുന്നതുവരെ പാർലമെന്റിൽ ഹാജരാകണ മെന്ന് തെലുഗുദേശം പാർട്ടി അംഗങ്ങൾക്ക് മൂന്നുവരി വിപ്പ് നൽകി റഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വ്ളാഡിമിർ പുടിന് വൻ വിജ യം

നാലാം തവണ റഷ്യൻ പ്രസിഡന്റാവുന്ന പുടിൻ അധികാരക്കസേരയിൽ കാൽ നൂറ്റാണ്ട് തികയ്ക്കും

ജനമൈത്രി പൊലീസ് സംവിധാനം വ്യാപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ജനമൈത്രി പദ്ധതിവഴി ഓരോ പ്രദേശത്തെയും കുടുംബങ്ങളും പൊലീസും തമ്മിൽ ഹോട്ട്ലൈൻ ബന്ധമുണ്ടാകണമെന്നും ഇതിന് വിരമിച്ച പൊലീസുകാരുടെ പിന്തുണ വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരള പൊലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെയും പെൻഷനേഴ്സ് അസോസിയേഷന്റെയും ലയനസമ്മേളനം തിരുവനന്തപൂരത്ത് ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു മുഖ്യമന്ത്രി

സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപറേഷന്റെ കൊല്ലം ജില്ലാ ഓഫീസ് മന്ദിരത്തിന് ശിലയിടുകയായിരുന്നു അദ്ദേഹം

വിവിധ പദ്ധതികളിലായി മൂന്ന് കോടി രൂപയുടെ വായ്പാ വിതര ണവും ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു ഇത്തവണത്തെ ചലച്ചിത്ര അവാർഡ് ദാനം മെയ് മാസ ത്തിൽ കൊല്ലത്ത് നടത്തുമെന്നും ബാലൻ പറഞ്ഞു മഹാത്മാ ഗാന്ധിയുടെ സന്ദേശങ്ങൾ എല്പായിടത്തുമെത്തിക്കാനായി പ്രത്യേക പരിപാടികൾ നടത്തുമെന്നും മന്ത്രി അറി യിച്ചു പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്നതിന് ഭിന്നശേഷിക്കാരായ ആളുകളെ പ്രാപ്തരാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് അവർക്ക് പരിശീലനം നൽകും

ആദ്യപരിശീലന പരിപാടി ഇന്ന് കോട്ടയം ജില്ലയിൽ നടക്കും കാഴ്ച വൈകല്യ മുള്ളവർക്കായി ഓഡിയോ ബ്രെയ്ൽ സന്ദേശങ്ങളും അതോറിറ്റി തയ്യാറാക്കിയി ട്ടുണ്ട്

മാനസിക വൈകല്യമുള്ളവരുടെ കാരൃത്തിൽ അവരുടെ രക്ഷിതാക്കൾക്ക് പരിശീലനം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു

വേനൽമഴ മൂന്നു ദിവസം കൂടി ഉണ്ടാകാൻ ഇടയു ണ്ടെന്ന് കൊച്ചിൻ സർവകലാശാല റഡാർ ഗവേഷണകേന്ദ്രം അറിയിച്ചു

് എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും കൊച്ചി നഗരത്തിലും ഇന്നലെ കനത്ത മഴ പെയ്തു ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ ഭേദപ്പെട്ട മഴ ലഭി ച്ചപ്പോൾ കൊച്ചി നഗരത്തിൽ കനത്ത മഴയാണ് ലഭിച്ചത് കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ ഇന്നലെ വൈകിട്ട് വീശിയ ടിച്ചു ശക്തമായ കാറ്റിൽ നാല് വീടുകൾ ഭാഗികമായി തകർന്നു ആറളത്തിന ടുത്ത വീർപാട് വെള്ളാർവള്ളി കുനിത്തല വെള്ളൂന്നി എന്നിവിടളിലാണ് വീടു കൾ തകർന്നത് കരിക്കോട്ടക്കരിയിൽ വീട്ടമ്മയ്ക്ക് മിന്നലേറ്റു ചെങ്ങന്നൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാട് തീരുമാനിക്കുന്നതിന് ചേർന്ന കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഇന്നലെ കോട്ടയത്ത് ചേർന്ന യോഗം തീരുമാനിച്ചു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചശേഷം തീരുമാനം കൈക്കൊള്ളുമെന്ന് യോഗത്തിനുശേഷം കെ

പാർട്ടിയുടെ മുന്നണി പ്രവേശം ഒരു അപ്ര തീക്ഷിത സമ്മാനമായിരിക്കുമെന്നും മാണി പറഞ്ഞു

ന്നങ്ങൾ ലഭിക്കുന്ന ഓരോ ഇക്കോഷോപ്പ് തുടങ്ങുമെന്ന് മന്ത്രി വി

സംസ്ഥാനത്ത് ആദ്യമായി നീലേശ്വരത്ത് തുടങ്ങിയ നീലേശ്വരം നാടൻ കുത്തരി ലഭിക്കുന്ന അരിക്കടയും ഇക്കോഷോപ്പും ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു അദ്ദേഹം

് ് ് ് ് ് ് ് കണ്ണൂർ തളിപ്പറമ്പ് കീഴാറ്റൂരിലെ നെൽവയൽ സംരക്ഷിക്കു തന്നെ ചെയ്യുമെന്ന് മന്ത്രി വി

സുനിൽകുമാർ പറഞ്ഞു കീഴാറ്റൂരിലെ വയൽകിളി കൾക്കൊപ്പമാണ് താനെന്നും നെൽകൃഷി സംരക്ഷിക്കലാണ് തന്റെ ജോലിയെന്നും മന്ത്രി കാസർകോട് നീലേശ്വരത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു

എന്തുകൊണ്ടാണ് അവരെ വയലിൽ നിന്ന് അടിച്ചോടിച്ചതെന്ന് അറിയില്ലെന്ന് മന്ത്രി പറഞ്ഞു

കൊളംബോയിൽ നടന്ന ഫൈനൽ പോരാട്ടത്തിൽ ബംഗ്ലാദേശിനെ നാലു വിക്കറ്റിന് തോല്പിച്ചാണ് ഇന്ത്യ കിരീടം നേടിയത് ആവേശം നിറഞ്ഞ കലാശപോരാട്ടത്തിൽ അവസാന പന്തിൽ ജയിക്കാൻ അഞ്ചു റൺസ് വേണ്ടിയിരുന്ന ഇന്ത്യക്ക് ദിനേശ് കാർത്തിക് സിക്സർ അടിച്ചാണ് ജയം സമ്മാനിച്ചത് മത്സരം കൈവിട്ടുപോകുമായിരുന്ന ഘട്ടത്തിൽ ദിനേശ് കാർത്തികാണ് ഇന്ത്യയുടെ രക്ഷകനായത്

ഇന്ന് ആദ്യമത്സരത്തിൽ ചണ്ഡീഗഡിനെ നേരിടും കൊൽക്കത്ത രബീന്ദ്രസരോ വർ സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് മൂന്നിനാണ് കിക്കോഫ് മറ്റൊരു മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗാളും മണിപ്പൂരും ഏറ്റുമുട്ടും

ആന്ധ്രാപ്രദേശിലെ ഭീമാവരത്തു നടന്ന ഫൈനലിൽ റെയിൽവെസിനെ കീഴ ടക്കിയാണ് കേരളം ജേതാക്കളായത്

യിൽ രേവതി വിളക്ക് ദർശിക്കാൻ പതിനായിരങ്ങളാണ് കൊടുങ്ങല്ലൂർ ദേവീക്ഷേ ത്രത്തിലെത്തുക

സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തീ കരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ലയായി മാറുകയാണ് കൊല്ലം സമ്പൂർണ ഭക്ഷ്യസുരക്ഷാജില്ലയെന്ന പ്രഖ്യാപനം ഇന്ന് വൈകിട്ട് മന്ത്രി കെ

ശൈലജ നടത്തും

പേരിൽ സംഘടിപ്പിക്കുന്ന ചരിത്ര ബോധനയാത്ര ഇന്ന് എറണാകുളം ജില്ലയിൽ പര്യടനം നടത്തും പൊതുജനങ്ങളിലും വിദ്യാർത്ഥികളിലും രാജ്യത്തിന്റെ ചരി ത്രവും പൈതൃകവും സംബന്ധിച്ച അവബോധം സൃഷ്ടിക്കുന്നതിനുവേണ്ടി സംഘ ടിപ്പിച്ച യാത്രയ്ക്ക് ജില്ലയിൽ മഹാരാജാസ് കോളേജ് ഫോർട്ടുകൊച്ചി എന്നിവിട ങ്ങളിൽ സ്വീകരണം നൽകും

കാട്ടുതീ ദുരന്തത്തെ തുടർന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളിലേയും മലമേടുകളിലേയും ട്രക്കിംഗ് നിർത്തിവച്ചിരുന്നു ഇതു സംബന്ധിച്ച് അമ്പേഷണം നടത്തുമെന്ന് മൂന്നാർ ഡി

ഒ നരേന്ദ്രബാബു അറിയിച്ചു

കൊല്ലമ്പാറ സ്വദേശി എം പത്മനാഭനാണ് മരിച്ചത്

ശ്യാംലാലാണ് മരിച്ചത്

പേരെ പൊലീസ് അറസ്റ്റ് ചെയ്തു സംഭവത്തിൽ കണ്ണാടിപൊയിൽ സ്വദേശിക ളായ ഏലിയാസ് വിൻസന്റ് മക്കൾ ജിജോ ജിന്റോ എന്നിവരാണ് അറസ്റ്റിലായത് ഇന്നലെ ഉച്ചയോടെ സ്റ്റേഷനിലെത്തി ഇവർ അതിക്രമം നടത്തുകയായിരുന്നുവെന്ന് പൊലീസ് പറഞ്ഞു

ലക്ഷ്യമെന്ന് മന്ത്രി മാത്യു ടി തോമസ് പറഞ്ഞു പത്തനംതിട്ട കുറ്റൂർ പാണ്ടിശേരി ഭാഗം യു

പൊതുവിദ്യാലയങ്ങൾ മുഖ്യാധാരയിൽ എത്തിയെങ്കിലേ മൂല്യബോധ മുൾക്കൊണ്ട് നല്ലൊരു തലമുറ ഉണ്ടാകൂ എന്നും അദ്ദേഹം പറഞ്ഞു

സാമൂഹിക സുരക്ഷിതത്വവും ന്യായമായ ആനുകൂല്യവും ഉറപ്പുവരുത്താൻ സംസ്ഥാന ഗവൺമെന്റ് ഇടപെടണമെന്നും ഐ എൻ ടി യു സി കാസർകോട് ജില്ലാ പ്രസിഡന്റ് പി

ദേവ് ആവശ്യപ്പെട്ടു നാഷണൽ ബീഡി ആൻഡ് സിഗാർ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേ ബീഡി മേഖലയെ ജി എസ് ടിയിൽ ന്നിന്ന് ഒഴിവാക്കണമെന്ന് കേന്ദ്ര ഹം ഗവൺമെൻിനോട് സമ്മേളനം ആവശ്യപ്പെട്ടു

ത്തിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ജില്ലയിൽ ആറ് കുളങ്ങൾ വൃത്തിയാക്കി

ഇടുക്കി കട്ടപ്പനയിൽ എ

പോലീസ് പിടികൂടി കൊച്ചുതോവാള സ്വദേശികളായ നിഖിൽ സതീശൻ എന്നിവരാണ് പിടിയിലായത് കട്ടപ്പനയിലെ കാനറാ ബാങ്കിന്റെ എ

എമ്മാണ് പ്രതികൾ കുത്തിപ്പൊളിക്കാൻ ശ്രമിച്ചത്

സജീവമാക്കാൻ നടപടിയെടുക്കുമെന്ന് കാർഷിക സർവകലാശാലാ വൈസ് ചാൻസലർ ഡോക്ടർ ആർ

തൃശൂർ മണ്ണുത്തിയിലെ സർവ കലാശാലാ ആസ്ഥാനത്തെത്തിയ അമേരിക്കൻ സർവകലാശാല ഉന്നതതല സംഘവുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം